പ്രധാനമന്ത്രി ജില്ലാ ആസ്ഥാനങ്ങളിൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പി

ശക്തമാക്കാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം

പ്രതിദിന കോവിഡ് രോഗികൾ

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും ജേതാക്കൾ ലോക അമ്പെയ്ത്തിൽ ഇന്ത്യൻ വനിതാ സംഘത്തിന് സ്വർണ്ണ മെഡൽ

വാക്സിനെക്കുറിച്ചുള്ള തെറ്റായ പ്രചാരണങ്ങൾക്ക് ചെവികൊടുക്കരുതെന്നും പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ ആവർത്തിച്ചു കോവിഡ് രണ്ടാം തരംഗത്തിൽ രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് ശ്രീ

ഡോക്ടർമാരോടും നഴ്സുമാരോടും സംവദിച്ച അദ്ദേഹം ആരോഗൃപ്രവർത്തകരുടെ പോരാട്ടത്തെ അഭിനന്ദിച്ചു

എസ് എ ഓക്സിജൻ ഉത്പാദ്ദിന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് പി എം കെയ്യേഴ്സ് നിധിയിൽ നിന്ന് പണം അനുവദിച്ചതായി പ്രധാന്മന്ത്രി കാര്യാലയം അറിയിച്ചു രാജ്യത്തെ കോവിഡ് സ്ഥിതി ക്യ്നക്കിലെടുത്ത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദേശമനുസ്കിച്ചാണ് ഓക്സിജൻ പ്താന്റുകൾ സ്ഥാപിക്കുന്നതിന് തത്ത്തിൽ അംഗീകാരം നൽകിയത് ജില്ലാ ആസ്ഥാനങ്ങളിലെ പ്രധാന ആശുപത്രികളിൽ സ്ഥാപിക്കുന്ന പ്ലാന്റുകളിൽ നിന്ന് അതത് ജില്ലകളിലേക്ക് തടസ്സമില്ലാതെ ഓക്സിജൻ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

രോഗവൃാപനം നിയന്ത്രണ വിധേയമാക്കാൻ വിവിധ ജില്ലകൾ നഗരങ്ങൾ പ്രാദേശിക തല നിയന്ത്രണങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം

സാമൂഹിക രാഷ്ട്രീയ മതപരമായ ഒത്തുചേരലുകളും ഉത്സവങ്ങളും കർശനമായി കണ്ടെയിൻമെന്റ് സോണുകളിൽ നിരോധിക്കണമെന്നും ആരോഗൃമന്ത്രാലയം നിർദ്ദേശിച്ചു

എം കെയേഴ്സ് ഫണ്ടിന്റെ സഹായത്തോടെ എട്ട് പി എസ് എ ഓക്സിജൻ ഉത്പാദന പ്താന്റുകൾ സ്ഥാപിക്കുന്നു

കോവിഡ് വ്യാപനത്തിലുണ്ടായ അഭൂതപൂർവ്വമായ കുതിച്ചു ചാട്ടത്തിൽ ഡൽഹിയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ പ്രതിസന്ധിയിലായ പശ്ചാത്തലത്തിലാണ് അടച്ചുപൂട്ടൽ നീട്ടുന്നത്

ഒൻപത് ലക്ഷത്തിലധികം പേരാണ് ഇതുവരെ രോഗമുക്തരായത്

രാജ്യത്തെ പ്രധാന തുറമുഖങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഷിപ്പിംഗ് തുറമുഖ മന്ത്രാലയം കൈമാറി ഇത്തരം കപ്പലുകൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും നിർദേശമുണ്ട്

എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഉയർന്ന രോഗവ്യാപനം

കോവിഡ് സാഹചര്യത്തിൽ മെയ് രണ്ട്രീന് ന്ന്ടക്കുന്ന വോട്ടെണ്ണലിന് ശേഷം ആഹ്ളാദ പ്രകടനങ്ങൾ നിയുന്ത്രീക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ സമവായം തേടുക്കിട്ടുന്ന് ലക്ഷ്യവും സർവകക്ഷി യോഗത്തിനുണ്ട് സമ്പൂർണ അട്ച്ചുപൂട്ടൽ ഉണ്ടാകില്ലെങ്കിലും വരും ദിവസങ്ങളിൽ അടച്ചുപൂട്ടലിന്റ് സമാനമായ കർശന നിയന്ത്രണങ്ങൾ സർവകക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന

ഇനിമുതൽ കാറ്റഗറി എ വിഭാഗത്തിൽപ്പെടുന്ന ചെറിയ രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും പരിശോധിക്കും

ഇവർക്ക് കൂടുതൽ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ അടുത്ത കാറ്റഗറിയിലേക്ക് മാറ്റി ചികിത്സിയ്ക്കണമെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നു രോഗതീവ്രതയനുസരിച്ച് നൽകേണ്ട മരുന്നിനെക്കുറിച്ചും അവയുടെ ഡോസേജ് സംബന്ധിച്ചും മാർഗ്ഗരേഖ വൃക്തമാക്കുന്നുണ്ട് റെംഡെസിവിർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഓക്സിജൻ ആവശ്യമുള്ള രോഗികൾക്ക് നൽകിയാൽ മതി കോവിഡ് രണ്ടാം തരംഗത്തിൽ രോഗലക്ഷണങ്ങൾ കുറഞ്ഞവർ പോലും പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് പുതിയ ചികിത്സാ മാർഗ്ഗരേഖ

സിനിമാ ശാലകളും ജിംനേഷൃങ്ങളും ക്സബ്ബുകളും ബാറുകളും ഇന്ന് പുലർച്ചെ അടച്ചു ക്ലസ്റ്റർ തല രോഗവ്യാപനം നിയന്ത്രിക്കാനായി തമിഴ്നാട്ടിൽ ഇന്നലെ ജില്ലാതല അടച്ചുപൂട്ടൽ ഏർപ്പെടുത്തിയിരുന്നു ഇന്നലെ തമിഴ്നാട്ടിൽ പതിനയ്യായിരത്തിലേറെ പേർക്ക് കോവിഡ്ട്ര സ്ഥിരീകരിക്കുകയുണ്ടായി

കൂടുതലും കോവിഡ് ചികിത്സയിൽ കഴിഞ്ഞവരാണ് കൊല്ലപ്പെട്ടത് ബാഗ്ദാദിലെ ഇബൻ അൽ ഖാത്തിബ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായത്

ദുരന്തത്തിൽ ഇറാഖ് പ്രധാനമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു

ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ ഈ സീസണിലെ ആദ്യ സൂപ്പർ ഓവറിലൂടെയാണ് ഡൽഹിയുടെ വിജയം ഇതോടെ ഡൽഹി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തി

രവീന്ദ്ര ജഡേജയുടെ തകർപ്പൻ ഓൾ റൌണ്ട് പ്രകടനത്തിലൂടെയാണ് ചെന്നൈയുടെ വിജയത്തിളക്കം

മെക്സിക്കൻ അമ്പെയ്ത്ത് താരങ്ങളെ തോൽപ്പിച്ച ഇവ്ടർ ഏഴ് വർഷത്തിനുശേഷം ഇതാദ്യമായാണ് അമ്പെയ്ത്ത് ലോകകപ്പ് ടീം സ്വർണ്ണം നേടുന്നത്